പകുതിയോളം പ്രവർത്ത്നങ്ങ്ളും ഇക്കാലത്ത് പുനഃരാരംഭിക്കാനാക്ടിട്ട്മെന്ന് കേന്ദ്രം

സോണുകളിൽ അന്തർ ജില്ലാ യാത്രകൾ ഉൾപ്പെടെ കൂടുതൽ ഇളവുകൾ

ഐകൃദാർഢൃവുമായി ഇന്ത്യൻ സായുധ സേനകൾ

അഞ്ച് ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു

ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള അധികാരമുണ്ടെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

രാജ്യത്ത് വളർച്ച് പ്രോത്സാഹിപ്പിക്കാനാവശ്യമായ ക്ഷേമ അടിസ്ഥാന നടപടികൾ ്യോഗത്തിൽ ചർച്ചയായി

രാജ്യത്തെ സൂക്ഷ്മ ീ ് ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ കർഷകർ ് എന്നിവർക്കുള്ള സംരക്ഷണ നടപടികൾ പണ വായ്പ ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ തുടങ്ങിയവ പ്രധാനമന്ത്രി ചർച്ച ചെയ്തു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള വഴികളും രാജ്യത്തെ വൃവസായങ്ങൾക്കായി സ്വീകരിച്ച ആശ്വാസ നടപടികളും ശ്രീ

രാജ്യത്തെ വൃവസായ സംരംഭങ്ങളെ സഹായിക്കുന്നത് വഴി തൊഴിലവസരങ്ങൾ കൂട്ടാനും

അടിസ്ഥാനസൌകരൃ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളുടെ വേഗതയെ കോവിഡ് ബാധിച്ചിട്ടുണ്ട് കൂടുതൽ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടും നിലവിലെ പദ്ധതികൾ വേഗം പൂർത്തീകരിച്ചുകൊണ്ടും ഈ സമയനഷ്ടം മറികടക്കണണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ധനമന്ത്രാലയ സെക്രട്ടറിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു

സംസ്ഥാനങ്ങളെയും ക്രോദ് ഭരണ പ്രദേശങ്ങളേയും വിവിധ സോണുകളായി തിരിച്ചാണ് ലോക്ക് ഡൌൺ നിയന്ത്രണങ്ങൾ തുടരുക ഗ്രീൻ സോണിൽ കൂടുതൽ ഇളവുകൾ നൽകും ബസ് ട്രെയിൻ മെട്രോ റെയിൽ സർവീസുകൾക്കുള്ള വിലക്ക് തുടരും

ഹ്ലോട്ട് സ്പോട്ടുകളിൽ ഒഴികെ ഗ്രീൻ ഓറഞ്ച് സോണുകളിൽ അന്തർജില്ലാ് യാത്രക്ക് നാളെ മുതൽ അനുമതി ഉണ്ടാകും ലോക്ഡുള്ള് നീട്ടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ സ്ഥിതി കൂടി കണക്കിലെടുത്താണ് നിയന്ത്രണ ങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നും സമൂഹ വ്യാപന സാധൃത പൂർണ്ണ മായി ഒഴിഞ്ഞു പോയിട്ടില്ല്പ്ന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ആരോഗ്യപ്രവർത്തകർ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശുചീകരണ തൊഴിലാളികൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ നടത്തുന്ന ധീരപ്രവൃത്തികൾക്കാണ് ഇന്ത്യൻ കര നാവിക വ്യോമ സേനാംഗങ്ങൾ ഇന്ന് ആദരമർപ്പിച്ചത്

ഡൽഹിയിലെ എയിംസ് സഫ്ദർജംഗ് ഉൾപ്പെടെ വിവിധ നഗരങ്ങളിലെ ആശുപത്രികൾക്ക് മുകളിലും സേനാ കോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തി

കൊറോണ ബാധിതരെ ചികിത്സിക്കുന്ന വിവിധ ആശുപത്രികൾ കരസേനയുടെ ബാൻഡ് സംഘങ്ങൾ സന്ദർശി ക്കുകയും സംഗീതം ആലപിക്കുകയും ചെയ്തു വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളും രാജ്യത്തിന്റെ വ്യിപ്പിധു ഭാഗങ്ങളിൽ പുഷ്പ വൃഷ്ടി നടത്തി

നാവികസേനയുടെ ഹെലികോപ്ടറുകൾ ജനറൽ ആശുപത്രിയുടെ മുകളിൽ പുഷ്പ വൃഷ്ടി നടത്തി

ചടങ്ങിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും അടക്കമുള്ളവർ പങ്കെടുത്തു നാവികസേനയുടെയും തീരസുരക്ഷാ സേനയുടേയും നാല് കപ്പലുകൾ ഇന്ന് വൈകിട്ട് കടലിൽ നങ്കൂരമിട്ട് വർണ്ണവിളക്കുകൾ തെളിയിച്ചു കൊണ്ട് ബാനറുകൾ ഉയർത്തി ആരോഗൃ പ്രവർത്തകർക്ക് ആദരവു പ്രകടിപ്പിക്കും

ഇന്ത്യൻ സൈനികർ കാട്ടിയ അസാമാന്യ ധൈര്യവും ഭീകരർക്കെതിരെ രാജ്യത്തെ രക്ഷിക്കാൻ നടത്തിയ ജീവത്യാഗവും രാജ്യം ഒരിക്കലും മറക്കില്ലെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു വീരമൃത്യു വരിച്ച സൈനികർക്ക് ശ്രീ

ധീരരക്തസാക്ഷികളുടെ കുടുംബവുമാ യി ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്തൃയിലെ മാധൃമങ്ങൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നു ണ്ടെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ജനങ്ങളെ ബോധവൽക്കരിക്കാനും വിവരങ്ങളറിയിക്കാനും മാധ്യമ ങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ശ്രീ

ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്യത്തെ ക്കുറിച്ചുള്ള സർവ്വേ റിപ്പോർട്ടുകൾ വൈകാതെ പുറത്ത് വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ രോഗബാധിത രുടെ എണ്ണം മൂവ്വായിരത്തോട് അടുക്കുന്നു

അതിനിടെ സംസ്ഥാനത്ത് നാളെ മുതൽ ലോക് ഡൌൺ വ്യവസ്ഥകളിൽ ഇളവനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു വിശദവിവരങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താ വിഭാഗം മേധാവി ഡോ

കൂടുതൽ ലാബുകൾക്ക് അനുമതി നൽകിക്കൊണ്ട് പരിശോധനകളുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കു ന്നതായും ഐ

എം ആർ അറിയിച്ചു